അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായിരുന്നു പസ്വാനെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ത സംസ്ഥാനത്തിന് ആശ്വാസമായി ഇന്നലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ്

എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ പരാജയപ്പെടുത്തി വാർത്തകൾ വിശദമായി കേന്ദ്രമന്ത്രിയും ലോക്ജനശക്തി പാർട്ടി നേതാവുമായ രാംവിലാസ് പസ്വാൻ അന്തരിച്ചു

അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയെ തുടർന്ന് ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സ്വകാര്യ ഇന്നലെ വൈകീട്ടായിരുന്നു പസ്വാന്റെ അന്ത്യം നരേന്ദ്രമോദി ഗവൺമെന്റിൽ ഭക്ഷ്യം പൊതുവിതരണം ഉപഭോക്തൃകാര്യം എന്നീ വകുപ്പുകളാണ് അദ്ദേഹം വഹിച്ചിരുന്നത് ദേദ രാജ്യത്തെ പ്രമുഖ ദളിത് നേതാക്കളിൽ ഒരാളാണ് ഇന്നലെ അന്തരിച്ച രാംവിലാസ് പസ്വാൻ

ജനതാ പാർട്ടിയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നത്

എട്ടുതവണ ബീഹാറിലെ ഹാജിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലെത്തി

ഡി ദേവഗൌഡ ഐ കെ ഗുജ്റാൾ അടൽബിഹാരി വാജ്പേയ് ഡോക്ടർ മൻമോഹൻ സിംഗ് മന്ത്രിസഭകളിൽ റെയിൽവെ കമ്മ്യൂണിക്കേഷൻ കെമിക്കൽ രാസവളം സ്റ്റീൽ വകുപ്പുകൾ പസ്വാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്

ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചിരിക്കെയാണ് രാംവിലാസ് പസ്വാന്റെ വിടവാങ്ങൽ

കേന്ദ്രമന്ത്രിസഭ ഇന്ന് യോഗം ചേർന്ന് പസ്വാന്റെ നിര്യാണത്തിൽ അനുശോചിക്കും ഡൽഹിയിലും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ തലസ്ഥാനങ്ങളിലും പസ്വാന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഇന്ന് ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടും

കാഴ്ചപ്പാടുള്ള നേതാവിനെയാണ് രാഷ്ട്രത്തിന് നഷ്ടമായതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുസ്മരിച്ചു അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായിരുന്നു അദ്ദേഹമെന്നും രാഷ്ട്രപതി പറഞ്ഞു പസ്വാന്റെ മരണം തനിക്ക് വ്യക്തിപരമായ നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒരു സുഹൃത്ത് മാത്രമല്ല അടുത്ത സഹപ്രവർത്തകൻ കൂടിയാണ് നഷ്ടമായതെന്നും നരേന്ദ്രമോദി പറഞ്ഞു രുര കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ പ്രകാശ് ജാവ്ദേക്കർ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽഗാന്ധി സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവരും പസ്വാന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു രുമ അഞ്ച് ദശകക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഹൃദയത്തോട് ചേർത്തുപിടിച്ച നേതാവായിരുന്നു രാംവിലാസ് പസ്വാനെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ബീഹാറിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തുവന്ന രാംവിലാസ് പസ്വാൻ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിലൂടെയാണ് ദേശീയ നിരയിലേക്ക് വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു

പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എൽ

പി സംസ്ഥാന പ്രസിഡന്റ് എം

ദര സംസ്ഥാനത്തിന് ആശ്വാസമായി ഇന്നലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ്

പരിശോധന വർദ്ധിച്ചിട്ടും രോഗികളുടെ എണ്ണം കുറഞ്ഞത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതു മൂലമാണെന്നാണ് റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ പേർ രോഗമുക്തി നേടിയ ദിവസമായിരുന്നു ഇന്നലെ

ദേദ കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചു പൂട്ടിയ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് ഉപാധികളോടെ തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ കലക്ടർ അനുമതി നൽകി ഒരാഴ്ചക്കുള്ളിൽ കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവായ കച്ചവടക്കാർ തൊഴിലാളികൾ പോർട്ടർമാർ എന്നിവർക്ക് മാത്രമാണ് മാർക്കറ്റിലേക്ക് പ്രവേശനം നൽകുക രുമ കോഴിക്കോട് ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കടകൾ തുറക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു രുമ കോവിഡ് പ്രതിരോധ ബോധവത്ക്കരണ നടപടികളുടെ ഭാഗമായി നടത്തുന്ന നോ മാസ്ക് നോ എൻട്രി സീറോ കോൺടാക്റ്റ് ചാലഞ്ച് ക്യാംപയിനുകൾക്ക് കണ്ണൂരിൽ തുടക്കമായി ക്യാംപയിൻ ലോഗോകൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം ചെയ്തു രുമ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മാസ്കുകൾ ധരിക്കുന്നതും അകലം പാലിക്കുന്നതും ഉൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തരുതെന്ന് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ഹമീദ് പറഞ്ഞു

അനിയന്ത്രിതമായ തിരക്ക് കൊവിഡ് വ്യാപനത്തിനിടയാക്കുന്നത് കണക്കിലെടുത്ത് ജില്ലയിലെ ഹാർബറുകൾ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലയ്ക്ക് പുറത്തുനിന്ന് നിയന്ത്രണങ്ങൾ പാലിച്ച് മത്സ്യം കൊണ്ടുവരാൻ അനുമതി നൽകിയത്

സ്വകാര്യ മില്ലുടമകളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുമെന്നും തിരുവനന്തപുരത്ത് ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞു നെല്ലിന്റെ വില അതാത് ദിവസം തന്നെ കർഷകർക്ക് നൽകുമെന്നും കടകംപള്ളി അറിയിച്ചു രുര ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പി എ മുഹമ്മദ് കൊച്ചിയിൽ അന്തരിച്ചു

കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സ്വാശ്രയ കോളജുകളുടെ പ്രവേശന നിരീക്ഷണ കമ്മിറ്റിയുടെയും ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെയും അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട് ഖബറടക്കം ഇന്ന് കറുകപ്പള്ളി ജുമാമസ്ജിദിൽ നടക്കും ജസ്റ്റിസ് പി എ മുഹമ്മദിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു രുമ മത്സ്യത്തൊഴിലാളി നേതാവും നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം കേരളഘടകം ജനറൽ സെക്രട്ടറിയുമായ വലിയവേളി ടി

സംസ്കാരം ഇന്ന് വേളി സെന്റ് സേവ്യേഴ്സ് പള്ളിയിൽ കോവിഡ് മാനദണ്ഡങ്ങളോടെ നടക്കും

പീറ്ററിന്റെ നിര്യാണത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അനുശോചിച്ചു

എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് മികച്ച വിജയം

ഇന്ന് ഷാർജയിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപ്പിറ്റൽസിനെ നേരിടും രുമ പട്ടിക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്കായി നിരവധി പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി എ

കണ്ണൂർ മുഴപ്പിലങ്ങാട്ടെ അംബേദ്കർ സാംസ്കാരിക നിലയം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

പി ദേശീയ ഉപാധ്യക്ഷൻ എ

എറണാകുളത്തു നിന്നും കണ്ണൂരിലേക്ക് പോകുന്നതിനിടെ ഇവർ സഞ്ചരിച്ച കാറിന് പിറകിൽ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു

കാറിന്റെ പിറകിൽ രണ്ട് തവണ ലോറി കൊണ്ടിടിച്ചെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു

രുദ ആക്രമണം ആസൂത്രിതമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഇന്ന് എല്ലാ കേന്ദ്രങ്ങളിലും ബി ജെ പി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം തൃശൂരിൽ അറിയിച്ചു അക്രമികളെ എത്രയും വേഗം പിടികൂടാൻ പൊലീസ് തയാറാകണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു രമേ കേരളാ കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിർണായക സ്റ്റിയറിങ്ങ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും കേരളാ കോൺഗ്രസിന്റെ ജന്മദിനം കൂടിയായ ഇന്ന് രാവിലെ പത്തിന് പാർട്ടി ആസ്ഥാനത്ത് പതാക ഉയർത്തിയ ശേഷം ഓൺലൈനായി ചേരുന്ന സ്റ്റിയറിങ്ങ് കമ്മിറ്റി യോഗം ഇടതുമുന്നണിയുമായി സഹകരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തേക്കുമെന്ന് നേത്വത്വം അറിയിച്ചു രുമ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം

കേസിലെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചാണ് പ്രധാനമായും പരിശോധനയെന്നാണ് റിപ്പോർട്ട് ദര ഇന്ന് ലോക തപാൽദിനം

ദൈനംദിന ജീവിതത്തിൽ തപാൽ മേഖലയുടെ സ്വാധീനവും ആഗോള സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ മേഖലയുടെ ജനങ്ങളെ പങ്കും ബോധ്യപ്പെടുത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം

വിവിധ പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കും